രാവിലെ അദ്ദേഹം ഗുരു വായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തും

അർദ്ധരാത്രിയോടെ എത്തിയ പ്രധാനമന്ത്രിയെ വിമാനത്താവളത്തിൽ ഗവർണർ പി സദാശിവം വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ സുരേഷ്ഗോപി എം പി മേയർ സൌമിനി ജെയിൻ ബി

പി അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ള തുടങ്ങിയവർ ചേർന്ന് സ്വീക രിച്ചു

തുടർന്ന് ശ്രീകൃഷ്ണ ഹൈസ്കൂൾ ഗ്രൌണ്ടിൽ ബി

പിയുടെ അഭിനന്ദൻ സമ്മേളൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും

രണ്ടാംതവണ പ്രധാനമന്ത്രിയായ ശേഷം ആദ്യമായാണ് മോദി കേരളത്തിലെത്തുന്നത് രംഭട്ട്ട്ട്ട്ട്ട്ട പ്രധാനമന്ത്രിയുടെ സന്ദർശനം പ്രമാണിച്ച് ഇന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശനത്തിന് നിയന്ത്രണം ഉണ്ടായിരിക്കുമെന്ന് പോലീസ് അറിയിച്ചു പടിഞ്ഞാറേ നടയിൽ രാവിലെ ഏഴ് മണി മുതൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനം കഴിയും വരെ ഭക്തജനങ്ങൾക്ക് പ്രവേശനം ഉണ്ടാവില്ല

ഇതിലൂടെ രാവിലെ ഏഴ് മണി മുതൽ അകത്തേക്ക് പ്രവേശനം നിയന്ത്രിക്കും ഒമ്പത് മണിയോടെ എല്ലാവരേയും ഒഴിപ്പിക്കും പിന്നെ പ്രിധാനമന്ത്രിയുടെ സന്ദർശനം കഴിഞ്ഞ് മാത്രമാവും പ്രവേശനം

രദ്ദമ്പ്പെട്ടറ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാലെദ്വീപിലും ശ്രീലങ്കയിലും രണ്ടുദിവ സത്തെ സന്ദർശനത്തിനായി ഇന്ന് യാത്ര ്ിരിക്കും മാലെദ്വീപ് പ്രസിഡന്റ് ഇബ്രാഹിം മുഹമ്മദ് സാലിഹ് ശ്രീലങ്കൻ പ്രസിഡന്റ് മൈത്രിപാല സിരി സേന എന്നിവരുടെ ക്ഷണമനുസരിച്ചാണ് ഇരു രാജ്യങ്ങളും പ്രധാനമന്ത്രി സന്ദർശിക്കുന്നത് സന്ദർശനം അയൽരാജ്യങ്ങളുമായി ഇന്ത്യയുടെ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി വിശ്വാസം പ്രകടിപ്പിച്ചു കഴിഞ്ഞ ഈസ്റ്ററിൽ ശ്രീലങ്കയിലുണ്ടായ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരോടും ശ്രീലങ്കൻ ഗവൺമെന്റിനോടും ഐകൃദാർഢൃം പ്രഖ്യാപിക്കാനാണ് തന്റെ സന്ദർശനമെന്ന് മോദി പറഞ്ഞു ഭീകരതക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യ ശ്രീലങ്കക്കൊപ്പം നിൽക്കുമെന്നും അദ്ദേഹം അറിയിച്ചു രദ്ദേഷ്ടങ സംസ്ഥാനത്തിന്റെ മൊത്തം പ്രശ്നങ്ങൾ ലോക്സഭക്ക് അകത്തും പുറത്തും ഉന്നയിക്കുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി വ്യക്ത മാക്കി വികസന പ്രശ്നങ്ങൾ നേരിട്ടറിയാൻ ഇനിയും വയനാട് മണ്ഡല ത്തിലെത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു മലപ്പുറം കാളികാവിൽ ഒന്നര കിലോ മീറ്റർ നീണ്ട റോഡ്ഷോയുടെ അവസാനം ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഹുൽഗാന്ധി വയനാട്ടിലെ ഓരോ വോട്ടറുടെയും പ്രതിനിധിയാണെന്നും പാർട്ടിക്കതീതമായി ജനങ്ങൾക്കുവേണ്ടി പ്രവർത്തി ക്കുമെന്നും അദ്ദേഹം അറിയിച്ചു കനത്ത മഴയിലും ആയിരക്കണക്കിന് പ്രവർത്തകരാണ് രാഹുലിന് അഭിവാദ്യം അർപ്പിക്കാൻ സ്വീകരണ കേന്ദ്രങ്ങ ളിലെത്തിയത്

പി ഫെസിലിറ്റേഷൻ സെന്റർ രാഹുൽഗാന്ധി സന്ദർശിക്കും വിവിധ മേഖലകളിൽ നിന്നുള്ളവ രുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും കർഷക പ്രതിനിധികൾ ട്രേഡ് യൂ ണിയൻ നേതാക്കൾ റെയിൽവെ ആക്ഷൻ കമ്മിറ്റി ആദിവാസി പ്രതിനിധി കൾ തുടങ്ങിയവരാണ് രാഹുൽഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തുക

തുടർന്ന് കമ്പളക്കാട് പനമരം മാനന്തവാടി പുൽപ്പ ള്ളി സുൽത്താൻ ബത്തേരി എന്നിവിടങ്ങളിൽ പര്യടനം നടത്തും രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം കണക്കിലെടുത്ത് സുരക്ഷ ശ്ക്തമാക്കിയിട്ടുണ്ട്

മുരളീധരന് ബി

പി കോ ഴിക്കോട് ജില്ലാകമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് വൈകീട്ട് റെയിൽവെ സ്റ്റേഷനിൽ സ്വീകരണം നൽകും

പി സംസ്ഥാന ജില്ലാ നേതാ ക്കൾ നേതൃത്വം നൽകും തുടർന്ന് സ്വീകരണ യോഗവും നടക്കും മലബാർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ആഭിമുഖ്യത്തിലും മുരളീധരന് സ്വീകരണം നൽകുന്നുണ്ട് രദ്ദേഷ്ടങ ദുബായിൽ വാഹനാപകടത്തിൽ മരിച്ച അഞ്ച് മലയാളികളുടെ മൃതദേ ഹങ്ങൾ ഇന്ന് നാട്ടിലെത്തിക്കും

മൃതദേഹങ്ങൾ എത്തിക്കാൻ നടപടി സ്വീകരിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയനും വിദേശകാരൃ സഹമന്ത്രി വി മുരളീധരനും തിരുവനന്തപുരത്ത് അറിയിച്ചു ദുബായിൽ രണ്ടുദിവസം അവധിയായതിനാലാണ് നടപടി ക്രമങ്ങൾ പൂർത്തി യാക്കാൻ താമസം നേരിടുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു മരിച്ചവരുടെ കുടും ബാംഗങ്ങളെ മുഖ്യമന്ത്രി അനുശോചനം അറിയിച്ചു

തലശേരി ചേറ്റൻകുന്നിലെ ചോനാ ക്കടവത്ത് ഉമ്മർ മകൻ നബീൽ ഉമ്മർ തിരുവനന്തപുരം മാധവപുരത്തെ പി എം ദീപകുമാർ തൃശൂർ സ്വദേശികളായ വിഷ്ണുദേവ് വാസുദേവൻ തളിക്കുളം അറക്കൽ വീട്ടിൽ ജമാലുദ്ദീൻ ചെമ്പുക്കാവ് വള്ളിത്തോട്ടത്തിൽ കിരൺ ജോണി കോട്ടയം പാമ്പാടിയിലെ വിമൽകുമാർ കാർത്തികേയൻ കണ്ണൂർ മൊറാഴ പാളിയത്ത് വളപ്പ് സ്വദേശി രാജൻ പുതിയപുരയിൽ എന്നി വരാണ് മരിച്ച മലയാളികൾ ഒമാനിൽ ഈദ് ആഘാഷം കഴിഞ്ഞ് ദുബായി ന ലേക്ക് മടങ്ങിയ സംഘം സഞ്ചരിച്ച ബസ് ട്രാഫിക് സൈൻബോർഡിലേക്ക് ഇടിച്ചുകയറിയായിരുന്നു അപകടം

ഒരാഴ്ച വൈകി യാണ് കേരളത്തിൽ കാലവർഷം എത്തുന്നത് വിവിധ ജില്ലകളിൽ ചൊവ്വാ ഴ്ചവരെ കനത്ത മഴക്ക് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട് കനത്ത മഴക്ക് സാധ്യത കണക്കിലെടുത്ത് ഇന്ന് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറ ണാകുളം തൃശൂർ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം തൃശൂർ ്രജില്ലകളിലും മറ്റന്നാൾ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം മലപ്പുറം കോഴി ക്കോട് ജില്ലകളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു

പോയിന്റ് പട്ടികയിൽ ശ്രീലങ്ക മൂന്നാമതും പാക്കിസ്ഥാൻ നാലാമതുമാണ് ഇന്ന് ആദ്യ മത്സരത്തിൽ ഇംഗ്ലണ്ട് ബംഗ്ലാദേശിനെയും മറ്റൊരു മത്സരത്തിൽ അഫ്ഗാനിസ്ഥാൻ ന്യൂസിലന്റിനെയും നേരിടും രദേഷ്ടെടു രാജ്യാന്തര ഹോക്കി ഫെഡറേഷന്റെ സീരീസ് ഹോക്കി ടൂർണമെന്റിൽ ഭുവനേശ്വറിൽ ഇന്ത്യക്ക് തുടർച്ചയായ രണ്ടാം ജയം ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് പോളണ്ടിനെയാണ് ഇന്ത്യ തോൽപ്പിച്ചത് ആദ്യകളിയിൽ റഷ്യയെ പത്ത് ഗോളിനാണ് ഇന്ത്യ തകർത്തത് ദർവ്വെടു കിംഗ്സ് കപ്പ് ഫുട്ബോളിൽ ആദ്യ കളി തോറ്റ ഇന്ത്യ ഇന്ന് മൂന്നാം സ്ഥാനത്തിനായി ആതിഥേയരായ തായ്ലന്റുമായി ഏറ്റുമുട്ടും ഇന്ത്യൻ സമയം ഉച്ചക്ക് രണ്ടിന് ബറിറാമിലാണ് മത്സരം

ചെറിയ പനിയുണ്ടെങ്കിലും ഭക്ഷണം കഴിക്കു ന്നുണ്ട് തുടർ ചികിത്സാ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് മെഡിക്കൽ ബോർഡ് യോഗം ചേർന്നു

പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദഗ്ദ്ധരും വനം വന്യജീവി വകുപ്പ് ഉദ്യോഗസ്ഥരും അടങ്ങുന്ന സംഘം സംയുക്തമായി നടത്തിയ തെര ച്ചിലിൽ നിപാ വൈറസ് പരത്തുന്ന പഴംതീനി വവ്വാലുകളെ കണ്ടെത്തിയ തായി റിപ്പോർട്ടുണ്ട് രദേഷ്ടെടു നിപ രോഗത്തിന്റെ ഉറവിടം കണ്ടുപിടിക്കുന്നതിന് ഗവൺമെന്റ് മുന്തിയ പരിഗണ നൽകണമെന്നും എല്ലാ ജില്ല കളിലും വൈറോളജി ലാബ് സ്ഥാപിക്കണമെന്നും കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ ആവശ്യപ്പെട്ടു നിപ കാലത്ത് മെഡിക്കൽ കോളജ് ആശുപത്രിയിൽ ജോലി ചെയ്ത താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് എം കെ രാഘവൻ എം

കഴിഞ്ഞ നിപ സമയത്ത് താൽകാലികമായി ജോലി ചെയ്ത ജീവനക്കാർക്ക് മാനുഷിക പരിഗണന നൽകി ഗവൺമെന്റ് വാഗ്ദാനം ചെയ്ത സ്ഥിരംജോലി നൽകണമെന്നും സുധീരൻ പറഞ്ഞു രദ്ദേഷ്ടങ സംസ്ഥാന ഹജ്ജ് ക്യാമ്പ് കരിപ്പൂർ ഹജ്ജ് ഹൌസിൽ അടുത്തമാസം ആറിന് തുടങ്ങും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ജൂ ലൈ ഏഴിന് രാവിലെ ആറിന് ആദ്യ ഹജ്ജ് വിമാനം കരിപ്പൂരിൽ നിന്ന് പുറ പ്പെടും

നാളെ ഉച്ചവരെ മാത്രമേ അക്കരെ കൊട്ടിയൂരിലേക്ക് സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കൂ ഉച്ചശീവേലിക്ക് ശേഷം അക്കരെ കൊട്ടിയൂരിൽ നിന്ന് ആനകളും മടങ്ങും

അള്ളട സ്വരൂപമായ മണ്ണമ്പുറത്ത് കാവിലെ കലശ മഹോത്സവത്തിന് ശേഷം ഉത്തര മലബാറിലെ കാവുകളും ക്ഷേത്രങ്ങളും ഇനി ആറുമാസങ്ങൾക്ക് ശേഷമാകും ഉണരുക ഉത്തര മലബാറിലെ കാവു കളിലും ക്ഷേത്രങ്ങളിലും തുലാം പത്തിനാണ് തെയ്യക്കോലങ്ങൾ കെട്ടിയാ ടുക

ഭക്ഷ്യസൂരക്ഷാ വാരാ ചരണത്തിന്റെ സംസ്ഥാനതല സമാപന സമ്മേളനം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം എണ്ണയിലെ മായം കണ്ടെത്താ നുള്ള ഉപകരണത്തിന്റെ പ്രകാശനവും മന്ത്രി നിർവഹിച്ചു രുട്ട്ട്ട്ട്ട്ട്ട്ട്ട കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ഈ സാമ്പത്തിക വർഷം തന്നെ മാവേലി സ്റ്റോറുകൾ ആരംഭിക്കുമെന്ന് മന്ത്രി പി തിലോത്തമൻ പറഞ്ഞു കോഴിക്കോട് അഴിയൂർ പഞ്ചായത്തിലെ മുക്കാളി ടൌണിൽ ആരംഭിച്ച മാവേലി സ്റ്റോർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി

ഇതിന്റെ ഭാഗമായി റേഷൻ സാധനങ്ങൾ കൃത്യമായ അളവിൽ ഉപഭോക്താക്കളുടെ കൈകളിൽ എത്തിക്കാൻ ഇ പോസ് മെഷീനുകൾ റേഷൻ കടകളിലെ ത്രാസുമായി ബന്ധിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു രദ്ദേഷ്ടങ റേഷൻ നമ്മുടെ അവകാശമാണെന്ന് എല്ലാ കാർഡ് ഉടമകളും ചിന്തി ക്കണമെന്ന് മന്ത്രി പി തിലോത്തമൻ പറഞ്ഞു കണ്ണൂർ പറശ്ശിനിക്കടവ് കോൾ മൊട്ടയിൽ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

ജില്ലാതല ഉദ്ഘാടനം സി കെ ശശീന്ദ്രൻ എം